ഇന്ത്യയിൽ പ്രാദേശികമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വെങ്കയ്യനായിഡു ഉദ്ഘാടനം ചെയ്യും

ഭരണഘടനയും നിയമവും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ പാലിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ

മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമലക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും

അത് ആഭ്യന്തര ഉൽപ്പാദകരെ അഭിമാനത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും പ്രേരക ശക്തിയാകാൻ രാജ്യത്തെ യുവജനങ്ങൾക്ക് സാധിക്കും രാജ്യ പുരോഗതിയിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം അടുത്ത ദശകങ്ങളിൽ വർദ്ധിക്കും

സമൂഹത്തിൽ പുതിയ ഉയരങ്ങൾ യുവജനങ്ങൾ സൃഷ്ടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യ ഈ വർഷം ബ്രിട്ടനെയും ഫ്രാൻസിനെയും മറികടന്ന് ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി

രാവിലെ ്തിരുവനന്തപുരത്ത് എത്തുന്ന ഉപരാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ വർക്കലയിലേക്ക് തിരിക്കും ശിവഗിരി തീർത്ഥാടന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് തോന്നയ്ക്കൽ സായിഗ്രാമത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ രജതജൂബിലി ആഘോഷത്തിലും മുഖ്യാതിഥിയാവും

തിരുവനന്തപുരം വിമാനത്താവളത്തീൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഇന്ന് തന്നെ ഉപരാഷ്ട്രപതി മുട്ടിങ്ങും

ഔദ്യോഗിക പദയാത്രകളും പ്രയാണങ്ങളും ഞായറാഴ്ച വൈകിട്ട് ശിവഗിരിയിൽ എത്തി

വരും ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പിണരായി വിജയൻ മന്ത്രിമാർ മറ്റു പ്രമുഖർ എന്നിവർ പങ്കെടുക്കും

എ മാരും എൻ സി പി കോൺഗ്രസ് കക്ഷികളുടെ പത്ത് പേരും ഇന്ന് വൈകിട്ട് മുംബൈയിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും

ചരിത്ര കോൺഗ്രസിൽ ഭരണഘടന മൂല്യങ്ങൾ തകർക്കപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇടപെട്ടത് ഭരണഘടനാ മൂല്യങ്ങൾ തകർന്നിട്ടില്ലെന്ന് പറയേണ്ടത് തന്റെ ബാധ്യതയാണ്

എല്ലാവരെയും ചർച്ചക്ക് ക്ഷണിച്ചിരുന്നു രാജ്ഭവനിലേക്ക് വരാനില്ലെങ്കിൽ പ്രതിഷ്ഠേശീക്കുന്നവരുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു എന്നിട്ടും ആരും പ്രതിക്ഴിച്ചില്ലെന്നും ഗവർണർ പറഞ്ഞു ചരിത്ര കോൺഗ്രസിൽ ഗവർണർ മുൾകൂട്ട്്ി തയ്യാറാക്കിയ പ്രസംഗം മാറ്റിവച്ച് രാഷ്ട്രീയ പ്രസംഗം നടത്തിയെന്ന സ്പീ പീഎം ആരോപണത്തിന് പിന്നാലെയാണ് ഗവർണർ നില്പ്പാട് ്യക്തമാക്കിയത്

കൊൽക്കത്തയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ അതിർത്തി രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് ന്യൂനപക്ഷ മത വിഭാഗങ്ങളിലെ അഭയാർത്ഥികൾക്ക് പൌരത്വ അവകാശം നൽകാൻ പുതിയ നിയമം വഴി സാധിക്കുന്നു എന്നും ശ്രീ രമേഷ് പൊക്രിയാൽ അഭിപ്രായപ്പെട്ടു

പ്രതിപക്ഷം ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഡെറാഡൂണിൽ നടന്ന റാലിയിൽ പങ്കെടുക്കവേ ശ്രീ അജയ് പറഞ്ഞു

ലോക്സഭയിലും നിയമസഭകളിലും നിലവിലുള്ള പട്ടികജാതി പട്ടിക വർഗ സംവരണം പത്ത് വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനുള്ള പ്രമേയം അംഗീകരിക്കാനാണ് പ്രത്യേക സമ്മേളനം ചേരുക

ജെ പി എറണാകുളം ജില്ലാ കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് കൊച്ചിയിൽ രാജ്യരക്ഷാ സമ്മേളനം സംഘടിപ്പിക്കും

ദേശീയ നിർവ്വാഹക സമിതിയംഗം സി

കണ്ണൂരിൽ നാളെ നടത്തുന്ന ജനജാഗ്രതാ സമ്മേളനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഉദ്ഘാടനും ച്ചുയ്യും

സംസ്ഥാനത്ത് നൂറിലീധികം കേന്ദ്രങ്ങളിലാണ് രാത്രി നടത്തം സംഘടിപ്പിച്ചത്

ഏറ്റവും അധികംപേർ നടന്നത് തൃശൂർ ജില്ലയിലാണ്

പ്രതിഭ സി കെ ആശഎഴുത്തുകാരി കെ

മീര ബീനാ പോൾ ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ പരിപാടിയിൽ പങ്കാളികളായി രാത്രികാലങ്ങളിൽ പുറത്ത് ഇറങ്ങി നടക്കുന്നതിൽ സ്ത്രീകൾക്ക് മാനസികമായ പ്രയാസങ്ങളും അകാരണമായ പേടിയുമുള്ള അവസ്ഥ മാറ്റുക സ്ത്രീകളെ രാത്രികാലങ്ങളിൽ ശല്യപ്പെടുത്തുന്നവർക്കെതി രെ കേസെടുത്ത് കർശന നടപടി സ്വീകരിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ

നെയ്യഭിഷേകവും പൂജകളും നാളെ ആരംഭിക്കും

വാജ്പേയിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ നാമത്തിലുള്ള അടൽ പാർക്കിലാണ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്

മുംബൈ എഫ് സിക്കായി മോഡു സുഗു രണ്ടുഗോളുകൾ വലയിലാക്കി